ഉപയോഗപ്പെടുത്താൻ പ്രധാനമുന്നി അഭ്യർത്ഥിച്ചു

പ്രത്യേക വായ്പാ പദ്ധതി പ്രഖ്യാപിച്ച് എസ്

ഇന്നലെ ജനതാ കർഫ്യൂവിന്റെ ഭാഗമായി വൈകിട്ട് അഞ്ചു മണിക്ക് ജനങ്ങൾ വീടുകളുടെ പുറത്തിറങ്ങി എല്ലാ ആരോഗ്യ സേവന പ്രവർത്തകർക്കും നന്ദി അറിയിച്ചു കൊറോണ വൈറസ് പോരാട്ടം നയിക്കുന്നവർക്ക് രാജ്യം ആദരമർപ്പിച്ചതായി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

കൊറോണ വൃദ്യപ്പ് സാഹചര്യത്തിൽ സാമൂഹ്യ ഒറ്റപ്പെടൽ ഉറപ്പാക്കാൻ ഡിജിറ്റൽ ൂസ്ംവിധാനങ്ങൾ സഹായകരമാണെന്നും അദ്ദേഹം ട്ടിറ്ററീൽ കുറിച്ചു

നിരവധി ബാങ്കുക്കൾ ഡിജിറ്റൽ ഇടപാടുകൾക്കുള്ള നിരക്കുകൾ കുറച്ചു

അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമേ ബാങ്ക് ശാഖകൾ സന്ദർശിക്കാൻ പാടുള്ളു പരമാവധി ഡിജിറ്റൽ സംവിധാനം ഉപയോഗിക്കാൻ ബാങ്കുകളോടും ഐ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂവിന് വലിയ പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് യോഗത്തിൽ വിലയിരുത്തപ്പെട്ടു

രാജ്യത്താകെ കോവിഡ് മരണം ഏഴായി

ആരോഗ്യരംഗം ഉൾപ്പടെ അവശ്യ സർവീസുകൾ ഉണ്ടാകുമെന്ന് ലെഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവർ അറിയിച്ചു

പൊതുജനങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല

അയൽ സംസ്ഥാനങ്ങളിൽ രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണിത് അവശ്യ വസ്തുക്കളുടെ വിതരണവും സേവനങ്ങളും നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ രണ്ടുപേർക്ക് വീതവും കണ്ണൂരിൽ നാലും ്കാസർകോട്ട് അഞ്ചുപേർക്കുമാണ് രോഗം

ഏഴ് ജില്ല പൂർണമായി അടച്ചിടാൻ തീരുമാനിച്ചെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു കാസർകോട് നിരോധനാജ്ഞ നിലവിൽ വന്നു കോഴിക്കോട് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി മറ്റു ജില്ലകളിലും നിയന്ത്രണം പാലിക്കണം ജനങ്ങൾ അത്യാവശ്യ സാഹചര്യത്തിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് നിർദേശിച്ചിട്ടുണ്ട് നേരത്തേ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കാൻ നിർദേശം നൽകി കൊച്ചി മെട്രോ തിങ്കളാഴ്ച മുതൽ സർവീസ് നടത്തില്ല അന്തർസംസ്ഥാന ബസ് സർവീസുകളും ദീർഘദൂര സംസ്ഥാന സർവീസും റദ്ദാക്കി

പെട്രോൾ പമ്പുകൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യ സേവനങ്ങൾ ലഭിക്കും

കൂടുതൽ ദിവസത്തേക്ക് പ്പെതി്സന്ധി തുടർന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിൽ കൊണ്ടു പ്ലരാനാകണം

ബി

ഇടപാടുകാർക്ക് കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് വായ്പ പദ്ധതി തയ്യാറാക്കുന്നത് ഏഴേകാൽ ശതമാനമാണ് പലിശ

സുരക്ഷാഭടൻമാരുടെ ജീവത്യാഗം രാജ്യം മറക്കില്ലെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

റേഷൻ വാങ്ങാൻ വരുന്നവരുടെ നീണ്ട നിരയും ഒത്തുചേരലും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ നീക്കം റേഷൻ സാധനങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും വീടുകളിൽ കൊണ്ടെത്തിക്കുന്ന പദ്ധതി മൂന്ന് ദിവസത്തിനുള്ളിൽ ആസൂത്രണം ചെയ്യാൻ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണറിന്റെ മുഖ്യ ഉപദേശകൻ ബാസിർ അഹമ്മദ് ഖാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുട്ടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ഒരു സംവിധാനം ആരംഭിച്ചത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് സാർക് നിധി രൂപീകരിച്ചത്

അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സ്ഥാനപതി സൽമെ ഖാലിൽ സാദ് ആണ് ഇക്കാര്യം അറിയിച്ചത്